സംസ്ഥാനതല സമവാകൃങ്ങൾ പരിഗണിച്ചായിരിക്കും സി

എം സഖ്യങ്ങളും മുന്നണികളും രൂപീകരിക്കുകയെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തകർച്ചയിൽനിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കേരള സൃഷ്ടി യാണ് നവ കേരളം കൊണ്ട് ലക്ഷ്യ മിടു ന്ന തെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ത്രിതല പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും മൂന്നു ലക്ഷ ത്തോളം റോഡുകൾ ഏറ്റെടുക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ

അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് സമാപിക്കും മാരാമൺ കൺവൻഷൻ ഉച്ചകഴിഞ്ഞ് തുടങ്ങും

ദിനേശ് ഷിഹാബ് തങ്ങൾ അസമിലെയും വടക്കുകിഴക്കൻ മേഖലയിലെയും ജന ങ്ങളുടെ താല്പര്യത്തെ പൌരത്വ ഭേദഗതി ബിൽ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകി സംസ്ഥാന ഗവൺമെന്റുകളുടെ ശുപാർശയും മതിയായ അന്വേ ഷണവും നടത്തിയായിരിക്കും പൌരത്വം അനുവദിക്കുകയെന്ന് അദ്ദേഹം അസമിലെ ചങ്സരിയിൽ പറഞ്ഞു അയൽരാജ്യങ്ങ ളിൽ ന്യൂനപക്ഷമായതിന്റെ പേരിൽ അതിക്രമങ്ങൾ നേരിടുന്ന വർക്ക് അഭയം നൽകാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാ ണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അസമിലെ നിരവധി വിക സന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു കൊൽക്കത്ത പൊലീസ് കമ്മീഷണർ രാജീവ് കുമാറി നെയും ടി

സി മുൻ എം പി കുനാൽ ഘോഷിനെയും സി ബി ഐ ഇന്നും ചോദ്യം ചെയ്യും

ബി ഐ ഓഫീസിൽ ശാരദാ ചിട്ടിഫണ്ട് അഴിമതിക്കേസിലാണ് ഇവ രിൽനിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത്

കേസിലെ നിർണ്ണാ യകമായ തെളിവുകൾ നശിപ്പിച്ചതിൽ രാജീവ്കുമാറിന്റെ പങ്കാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് സംസ്ഥാനതല സമവാക്യങ്ങൾ പരിഗണിച്ചായിരിക്കും സി

എം സഖ്യവും മുന്നണിയും രൂപീകരിക്കുകയെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹി യിൽ വൃക്തമാക്കി

പാർട്ടി കേന്ദ്ര കമ്മിറ്റി മാർച്ച് മൂന്ന് നാല് തീയതികളിൽ ചേർന്ന് സഖ്യക ക്ഷികളെ തീരുമാനിക്കുമെന്നും യെച്ചൂരി അറിയിച്ചു

എ അധികാരത്തിൽ വന്നാൽ പട്ടിക്വിഭാഗങ്ങൾക്ക് സ്വകാര്യമേഖലയിൽ സംവരണത്തിന് ്നിയമം കൊണ്ടുവരു ന്ന കാര്യം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്ന് കെ

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് ആവ ശ്യപ്പെട്ടു

ഐ

സി മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ പി ചിദംബരത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതായി കൊടിക്കു ന്നിൽ അറിയിച്ചു സ്വകാര്യമേഖലയിൽ സംവരണം ഇല്ലാത്ത തുകൊണ്ട് അഭ്യസ്തവിദ്യരായ പട്ടികവിഭാഗക്കാർക്ക് പരിഗ ണന ലഭിക്കുന്നില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രസ്താവന യിൽ പറഞ്ഞു പ്രളയത്തിൽ തകർന്ന കേരളത്തെ അതേപടി പുനഃസൃഷ്ടി ക്കുകയല്ല നവകേരളത്തിന്റെ ലക്ഷ്യമെന്നും തകർച്ചയിൽനിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കേരളത്തെ സൃഷ്ടിക്കലാ ണെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു ഭവന നിർമ്മാണ വകുപ്പും നിർമ്മിതി കേന്ദ്രവും തൃക്കരിപ്പൂർ എഞ്ചി നീയറിംഗ് കോളേജും ചേർന്ന് സംഘടിപ്പിച്ച നവകേരളത്തിന് പുതിയ ഭവന സാക്ഷരത ശില്പശാല ഉദ്ഘാടനം ചെയ്യുക

ത്രിതല പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും കീഴിലെ മൂന്നുലക്ഷത്തോളം റോഡുകൾ നവീകരിക്കാനും ഏറ്റെടു ക്കാനും പൊതുമരാമത്ത് വകുപ്പ് വൈകാതെ പദ്ധതി നടപ്പാ ക്കുമെന്ന് മന്ത്രി ജി

നീല്പേശ്വരം എടത്തോട് റോഡിന്റെ നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്തിം ലീഗ് പാർലിമെന്ററി പാർട്ടി യോഗം ഇന്ന് രാവിലെ പാണക്കാട്ട് ചേരും പാർട്ടിയുടെ മൂന്നാം സീറ്റ് ഉൾപ്പെടെ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും സിറ്റിംഗ് എംപിമാരെ ഇത്തവണയും മത്സരിപ്പിക്കാൻ ലീഗിൽ ധാരണയായതായി സൂചനയുണ്ട് പാർലമെന്റിൽ ബി ജെ പിക്കെതിരേ പ്രതിഷേധത്തിന് ഒന്നിച്ചുകൂടുമ്പോഴെല്ലാം സി

എം ഇടങ്കോലിടുമെന്ന് പി

കുഞ്ഞാലിക്കുട്ടി എം

ആരോ പിച്ചു ജനമഹായാത്രയ്ക്ക് കൊണ്ടോട്ടിയിലെ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ്

ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നയിച്ചതിന്റെ പേരിൽ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റില്ലെന്ന് ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ് ആഞ്ചലോ ഗ്രേഷ്യസ് വൃക്തമാ ക്കി കന്യാസ്ത്രീകൾക്ക് കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുട രാമെന്ന് ജലന്ധർ രൂപത അറിയിച്ചു സമരത്തിൽ പങ്കെടുത്ത അഞ്ച് കന്യാസ്ത്രീകൾക്കും ഇക്കാര്യം വ്യക്തമാക്കി ഇ മെ യിൽ സന്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ മദർ ജനറലിനാണ് കന്യാസ്ത്രീകളുടെ കാര്യ ത്തിൽ ഉത്തരവാദിത്ഥമെന്നും കന്യാസ്ത്രീകളെ മാതൃമഠത്തി ലേക്ക് തിരികെ വിളിക്കുന്നത് അവരുടെ അധികാര പരിധി യിൽ വരുന്ന കാര്യമാണെന്നും ജലന്ധർ രൂപതയുടെ പി ആർ ഒ ഫാ പീറ്റർ കാവുമ്പുറം പിന്നീട് അറിയിച്ചു

മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ ത്തേത് ന്യൂസിലാൻഡും രണ്ടാമത്തേത് ഇന്ത്യയുമാണ് വിജയിച്ചത്

വനിതാ മത്സരത്തിൽ കഴിഞ്ഞ രണ്ട് കളിയും ഇന്ത്യ തോറ്റിരുന്നു

പെൺകുട്ടികളുടെ ദേശീയ മീറ്റോടെയാണ് മേളയുടെ തുടക്കം

ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത്തവണ വെവ്വേറെയാണ് മത്സരം ആൺകുട്ടികളുടെ മീറ്റ് വെള്ളിയാഴ്ച തുടങ്ങും വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരായ ചതുർദിന ക്രിക്കറ്റിൽ ഇന്ത്യ എ ടീമിന് കൂറ്റൻ സ്കോർ

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട് ബോളിൽ നിലവിൽ ചാമ്പ്യന്മാരായ ചെന്നൈയിൻ എഫ് സി ബംഗളൂരുവിനെ തോൽപിച്ചു ചെന്നൈയിൻ എഫ് സിക്ക് ഇത് സീസണിലെ രണ്ടാം വിജയമാണ്

കെയുമായി ഏറ്റുമുട്ടും കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ് ഡിവിഷൻ എ ഫൈനലിൽ ഝാർക്കണ്ഡും ഹരിയാനയും ഇന്ന് ഏറ്റുമുട്ടും ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്നിനാണ് മത്സരം ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ രാവിലെ മിസോറാം ഉത്തർപ്രദേശിനെ നേരിടും അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത് ഇന്ന് സമാ പിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്വാമി പൂർണ്ണാനന്ദപുരി സമാപ്പന സ്ന്ദേശം നൽകും

ഉച്ചകഴിഞ്ഞ് മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോ ജോ സഫ് മാർത്തോമാ മെത്രാ പൊ ലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും എട്ടു ദിവസത്തെ കൺവെൻഷനിൽ എക്യുമെനിക്കൽ സമ്മേളനം യുവജന സമ്മേളനം വനിതാ സമ്മേളനം ബൈബിൾ സമ്മേളനം തുട ങ്ങിയ ഉണ്ടായിരിക്കും അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പാക്കുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് മന്ത്രി ഇ

സംസ്ഥാനത്ത് വ്യവസായ നിക്ഷേപം ഉറപ്പാക്കുന്നതാണ് ബജറ്റ് നിർദ്ദേശങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ പാട്യം ഗോപാലൻ ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച സെമി

എക്സൈസ് വകുപ്പിനെ അഴിമതി മുക്തമാക്കി പുതിയ മുഖം നൽകാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ടി

എക്സൈസ് വകു പ്പിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂ രിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അസോസിയേ ഷൻ സംസ്ഥാന പ്രസിഡന്റായി എൻ

സലീംകുമാ റിനെയും ജനറൽ സെക്രട്ടറിയായി എൻ അശോക് കുമാറി നെയും തെരഞ്ഞെടുത്തു

സി മൊയ്തീൻ ആലുവയിൽ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ ഡി

സി മൊയ്തീൻ പറവൂരിൽ തറക്കല്ലിട്ടു

സംസ്ഥാന ഗവൺമെന്റിന് കീഴിലെ അസാപിന്റെ നേതൃത്വ ത്തിന്റെ സംസ്ഥാനതല പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഇന്ന് കൊച്ചിയിൽ

പ സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നതിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടതായി എം

എഫ് ദേശീയ നേതൃക്യാമ്പ് വിലയിരുത്തി

അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിയമ നിർമ്മാണ ത്തിലൂടെ മാത്രം ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ഠേയ കട്ജു അഭിപ്രായപ്പെട്ടു ബോധവൽക്കരണത്തിലൂടെയും നവോത്ഥാനത്തിലൂടെയും ദുരാചാരങ്ങളെ തടയാൻ കഴിയുമെന്ന് കേരളം ലോകത്തിന് കാണിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാർക്കണ്ഠേയ കട്ജു മന്ത്രി ഡോ

ടി ജലീൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുംഭമാസ പൂജകൾക്കായി ശബരിമലയിൽ മറ്റന്നാൾ വൈകിട്ട് നട തുറക്കും